മാതൃകാ പെരുമാറ്റച്ചട്ടം ലൂഷ്ലിച്ചതായുള്ള രണ്ട് പരാതികളിൽക്കൂടി തെര്യ്ഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയ്ക്ക് ശുദ്ധി പത്രം നൽകി

കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോയ അഞ്ച് ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് നൈജീരിയിലെ ഇന്ത്യൻ സ്ഥാനപതിയിൽ നിന്ന് റിപ്പോർട്ട് തേടി

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ട്ണ വോയ്സ് ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴിച്ചാൽ അഞ്ചാംഘട്ടത്തിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സന്ദീപ്സക്സേന ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു

അതേ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത രണ്ട് ഘട്ടങ്ങളിലേയ്ക്കുള്ള പ്രചാരണം ഊർജ്ജിതമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേജ്രിവാളിനോട് ഇന്ന് തന്നെ മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്

ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

പൊതു താത്പര്യം കണക്കിലെടുത്ത് പെരുമാറ്റ ചട്ട ലംഘനത്തിൽ അയവ് വരുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൃപ്തി ഇല്ല എന്നും കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലയളവിൽ വോട്ടെണ്ണലിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിമാർക്കൊപ്പം യാത്രകളിൽ പങ്കെടുക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു

ഒരു നിയമസഭാ ്മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിന് പകരമായി ആഞ്ച് ബ്ദ്ത്തുകളിൽ വി വി പാറ്റ് സ്തിപ്പുകൾ ഒത്തു നോക്കണമെന്ന് കുഴിഞ്ഞ മാസം എട്ടിന് സൂപ്രിം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷ്ന് നീർദ്ദേശം നൽകിയിരുന്നു പരാതിക്കാർക്കുവേണ്ടി ഫ്ടാജ്രായ അഡ്വക്കേറ്റ് എ

നിലവിലെ സ്ഥിതിയനുസരിച്ച് രണ്ട് ശതമാനം വോട്ടുകൾ ്മാത്രമേ ഒത്തുനോക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വാദിച്ചു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയ്ക്ക് എതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കും

ഇവരെ വിട്ടയയ്ക്കുന്നത് സംബന്ധിച്ച് നൈജിരിയൻ ഗവൺമെന്റുമായി ചർച്ച ചെയ്യണമെന്നും ശ്രീമതി സ്വരാജ് ഇന്ത്യൻ സ്ഥാനപതി അഭയ് താക്കൂറിനോട് ആവശ്യപ്പെട്ടു

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് ഈ മാസം യു എസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങളിലേയ്ക്ക് യാത്ര ചെയ്യാൻ സൂപ്രീം കോടതി അനുമതി നൽകി കാർത്തി ചിദംബരത്തിന് എതിരെയുള്ള കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സിബിഐയുടെയും അന്വേഷണം തുടരുകയാണ് മുമ്പ് നിർദ്ദേശീച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി വിദേശത്തേയ്ക്ക് യാത്രി ച്ചെയ്യാനാണ് ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗോഗോയി അധ്യക്ഷനായ് ബ്ഞ്ച് അനുമതി നൽകിയത് സുപ്രീം കോടതിയിൽ പത്ത്കോടി രൂപ കെട്ടിവച്ചശേഷം യാത്ര ചെയ്യാൻ കഴിഞ്ഞ ജനുവരിയിൽ കോടതി അനുമതി നൽകിയിരുന്നു

നാശനഷ്ടമുണ്ടായ മൂന്ന് ജില്ലകളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി സംസ്ഥാന ഊർജ്ജ സെക്രട്ടറി ഹേമന്ത് ശർമ്മ അറിയിച്ചു ഭൂവനേശ്വർ മേഖലയിൽ ഇന്ന് വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പൂർവ്വ സ്ഥിതിയിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചുഴലിക്കാറ്റിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായ ധനം നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യു

കേന്ദ്ര വാണിജ്യമന്ത്രി സുരേഷ് പ്രഭുവും അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി വിൽബർ റോസും ചടങ്ങിൽ അദ്ധ്യക്ഷരായി

കൂടൂത്ൽ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് തടയുന്നതിനിട്ടെയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ രണ്ട് ബോംബ് പരിശോധകർ ്ക്ട്രിാല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു

വിശ്വാസികൾ കഴിഞ്ഞ രാത്രി പ്രത്യേക പ്രാർത്ഥനയായ തരാവീഹ് നടത്തി ഈ മാസം അവസാനം വരെ പ്രാർത്ഥനകൾ നടക്കും

കേരളത്തിലും പടിഞ്ഞാറൻ ഏഷ്യയിലും ഇന്നലെയായിരുന്നു ആദ്യ നോമ്പ് ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് റംസാൻ ആശംസകൾ നേർന്നു

നല്ലൊരു ചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഭഗവാൻ ബാസവേശ്വര തന്റെ ജീവിതത്തിലുടനീളം സമൂഹത്തെ വികസനത്തിലേക്ക് നയിക്കാനും ജനങ്ങളെ ബോധവത്കരിക്കാനും വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാനും ശ്രമിച്ചതായും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

ഭഗവാൻ പരശുറാം ധീരതയുടേയും സത്യസന്ധതയുടെയും പ്രതീകമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഭഗവാൻ പരശുരാമിന്റെ ആദർശങ്ങളുടെ ശക്തി സമൂഹത്തെ ഏകീകരിക്കാനും നീതിയുക്തമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു

എൽ കിരീടപോരിൽ ഇനി നാല് മൽസരങ്ങൾ മാത്രം ഇന്ന് നടക്കുന്ന ഒന്നാം കാളിഫയർ മൽസ്ര്ത്തിൽ ചെന്നൈ സൂപ്പർകിങ്സും മുംബൈ ഇൻഡ്യൻസ്ടൂം ഏറ്റുമുട്ടും

നാളെ നടക്കുന്ന എലിമിനേഷൻ മൽസരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദ്ദ്രാബാദിനെ നേരിടും ഇന്നത്തെ മൽസരത്തിൽ തോൽക്കുന്ന ടീമും നാളത്തെ എലിമിനേഷൻ മൽസരത്തിൽ ജയിക്കുന്ന ടീമും തമ്മിൽ പത്തിന് രണ്ടാം കാളിഫയർ നടക്കും